മഴക്കെടുതികൾ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അടിയന്തരയോഗം വിലയിരുത്തി ഇടുക്കി ചെറുതോണി ഡാമിൽ ട്രയൽ റൺ തുടങ്ങി

ഡി എ യിലെ ഹരിവൻഷ് നാരായൺസിംഗ് രാജ്യസഭാ ഉപാധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടു

ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റ് ലണ്ടനിലെ ലോഡ്സിൽ ഇന്നുമുതൽ

ഉരുൾപൊട്ടിയും മണ്ണിടിഞ്ഞും വിവിധ ജില്ലകളിൽ കനത്ത നാശം

ഇടുക്കി വയനാട് മലപ്പുറം ജില്ലകളിലാണ് കൂടുതൽ ദുരിതം

കണ്ണൂരും കോഴിക്കോടും ഒരാൾവീതം മരിച്ചു ഇടുക്കി അടിമാലിയിൽ മണ്ണിടിച്ചിലിൽ ഒരു കുടുംബത്തിലെ അഞ്ചു പേരും കഞ്ഞിക്കുഴി പെരിയാർ വാലിയിൽ ഉരുൾപൊട്ടലിൽ രണ്ടുപേരുമാണ് മരിച്ചത് മലപ്പുറത്ത് അഞ്ചു പേരാണ് ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലിലും മരിച്ചത് മലവെള്ളപ്പാച്ചിലിൽ കൊല്ലം ചെങ്കോട്ട ദേശീയപാതയിൽ തെൻമല ഇടപ്പാളയത്ത് റോഡിന്റെ വശങ്ങൾ ഇടിഞ്ഞു ഇടുക്കി മുഖ്യമന്ത്രി സംസ്ഥാനത്ത് കനത്ത ്മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇടുക്കി ഉൾപ്പെടെ അണക്കെട്ടുകളിലെ ഷട്ടറുകൾ ഉയർത്തേണ്ട സാഹചര്യമാണ് ഉള്ളതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു മഴയിൽ ഒറ്റപ്പെട്ട വയനാട്ടിൽ ഉള്ളവരെ രക്ഷിക്കുന്നതിനായി നാവികസേനയുടെ വിമാനം ആവശ്യപ്പെട്ടിട്ടുണ്ട് അടുത്ത രണ്ടു ദിവസം കൂടി മഴ തുടരുമെന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഇതു മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണ്ട ഒരുക്കങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് ജനപ്രതിനിധികളുടെകൂടെ സഹായത്തോടെ ദുരന്തനിവാരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രത്യേക സാഹചര്യം മാനിച്ച് നെഹ്റു ട്രോഫി വള്ളംകളി മാറ്റിവച്ചതായും മുഖ്യമന്ത്രി പ്രത്യേക വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉന്നതതല യോഗത്തിന് ശേഷമാണ് മുഖ്യമന്ത്രി കാര്യങ്ങൾ വ്യക്തമാക്കിയത്

അഞ്ചു പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു

കോളനിയിലെ അഞ്ചു വീട്ടുകൾ ് പൂർണമായും മണ്ണിനടിയിലായി ബുധനാഴ്ച രാത്രിയോടെയാണ് ഉരുൾപ്പൊട്ടിയത് നിലമ്പൂർ ടൌണും പരിസരങ്ങളിലും വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്

ഒരു കുടുംബത്തിലെ ഏഴ് പേരാണ് മണ്ണിനടിയിൽ അകപ്പെട്ടത് പുതിയ കുന്നേൽ ഹസ്സൻകുട്ടിയുടെ ഭാര്യയും മകനും മരുമകളും പേരക്കുട്ടികളുമാണ് മരിച്ചത്

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി ആന്റണി മുനിയറ

ഇടുക്കി ചെറുതോണി അണക്കെട്ടിൽ ട്രയൽറൺ ആരംഭിച്ചു ചെറുതോണി അണക്കെട്ടിന്റെ ഒരു ഷട്ടറാണ് തുറന്നത്

ടടടടടടടടടടടട ചിമ്മിണി ഡാം കനത്ത മഴയെ തുടർന്ന് തൃശൂർ ജില്ലയിലെ ചിമ്മിണി ഡാം ഉടൻ തുറക്കേണ്ടിവരുമെന്ന് അധികൃതർ അറിയിച്ചു

ടടട മഴ തൃശ്ശൂർ തൃശ്ശൂർ ഇടമലയാർ തുറന്ന തോടെ പുല്ലൂറ്റ് അഴിക്കോട് എറിയാട് പൊയ്യ എന്നീ വില്ലേജുകളിൽ ജാഗ്രത്യി നീർദ്ദേശം നൽകി

ടടടടടടടടടടടട മലമ്പുഴ ഡാം പാലക്കാട് ജില്ലയിൽ വെളളപ്പൊക്കത്തിൽ നിന്ന് ജനങ്ങളെ മാറ്റി സുരക്ഷിതമായി താമസിപ്പിക്കുന്നതിന് പത്ത് കൃാമ്പുകൾ ആരംഭിച്ചു

എ സ്ഥാനാർത്ഥി ജെ

പ്രതിപക്ഷ കോൺഗ്രസ് സ്ഥാനാർത്ഥി ബി

ഹരിപ്രസാദിനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത് പ്രൊഫ

കുര്യൻ കഴിഞ്ഞമാസം സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്നാണ് തിരഞ്ഞെടുപ്പ്

രാജ്യസഭാ ഉപാധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട ഹരിവൻഷ് സിംഗിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുമോദിച്ചു ടടട ക്രിക്കറ്റ് ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള രണ്ടാം ക്രിക്കറ്റ് മത്സരം ഇന്ന് ലണ്ടനിലെ ലോഡ്സിൽ നടക്കും

ആദ്യ മത്സരം ജയിച്ച ഇംഗ്ലണ്ട് പരമ്പരയിൽ മുന്നിലാണ് കേസുമായി ബന്ധപ്പെട്ട് മടങ്ങിയതിനാൽ ഇംഗ്ലണ്ടിന്റെ ഓൾ റൌണ്ടർ ബെൻ സ്റ്റോക്സ് രണ്ടാം ടെസ്റ്റിൽ കളിക്കില്ല പകരം ക്രിസ് വോക്സിനെ ടീമിൽ ഉൾപ്പെടുത്തി ആദ്യ ടെസ്റ്റിലെ പരാജയത്തെ തുടർന്ന് ഇന്ത്യൻ ടീമിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ചേതേശ്വർ പൂജാരയും രവീന്ദ്ര ജഡേജയും ടീമിൽ ഇടം നേടി

ആദ്യഘട്ടമെന്ന നിലയിൽ പ്രളയബാധിതരെ സംബന്ധിച്ച് റവന്യൂ വകുപ്പ് തയ്യാറാക്കിയ നെഹ്റുട്രോഫി വാർഡിലെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള കുടുംബാംഗങ്ങൾക്ക് കയറുൽപ്പന്നങ്ങൾ വിതരണം ചെയ്യും

തോമസ് ഐസക് ഉദ്ഘാടനം നിർവഹിക്കും

ലക്ഷക്കണക്കിനാളുകളാണ് അപേക്ഷിക്കാൻ തയ്യാറായി നിൽക്കുന്നത് ഈ സാഹചര്യത്തിലാണ് മതിയായ പരിശീലനവുമായി പാനൂർ ജനമൈത്രി പോലീസ് രംഗത്തെത്തിയത്

ടട സന്ദർശകർക്ക് നിയന്ത്രണം സ്വാതന്ത്രൃ ദിനാഘോഷത്തോട് അനുബന്ധിച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി കൊച്ചി വിമാനത്താവളത്തിലെ ടെർമിനലുകൾക്കുള്ളിൽ സന്ദർശകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി

ബ്രിട്ടീഷ്കാരെ പുറത്താക്കാൻ തീവ്രയത്നം നടത്താനുള്ള ആഹ്വാനമായിരുന്നു അത്

ആഗസ്റ്റ് ക്രാന്തിദിനം എന്ന പേരിലാണ് എല്ലാ വർഷവും ഈ ദിനം ആചരിക്കുന്നത്